മത്സ്യ ഉത്പന്ന കയറ്റുമതിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രസർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി സോം പ്രകാശ്

സാമ്പത്തികമാന്ദ്യം പരിഹരിച്ച് സ്റ്റ്സ്ഥാനത്തിന്റെ വികസനം മുന്നോട്ടു കൊണ്ടു ്ട്രൂപോകുന്നതാണ് കേരള ബജറ്റെന്ന് മുഖ്യമന്ത്രി പ്പീണ്റായി വിജയൻ

കൊറോണ വൈറസ്ട്ബാധയുടെ ആശങ്ക ഒഴിഞ്ഞെങ്കിലും സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നു

പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി

ഇബ്രാഹിംകുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചു അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഇബ്രാഹിംകുഞ്ഞ്

രണ്ടാം മത്സരവും വിജയിച്ച ന്യൂസിലന്റ് ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി

ഇന്ത്യയുടെ സമ്പദ്വൃവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ മത്സ്യബന്ധന മേഖല മഹത്തായ കർമ്മമാണ് നിർവ്വഹിക്കുന്നത്

മൂന്നരവർഷം കൊണ്ട് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ഉറപ്പിച്ച് കാർഷിക വൃവസായ ആരോഗ്യ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് നിർദേശങ്ങൾ സാമൂഹ്യ മേഖലകളിലെ വികസനം സർക്കാർ മുന്നോട്ടു കൊണ്ടു പോവുകയാണ് വനിത ശിശു ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള വർധിച്ച വകയിരുത്തലുകളും വയോജന ക്ഷേമത്തിനുള്ള നിർദേശങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് കാർഷിക മത്സ്യബന്ധന മേഖലകളിൽ വലിയ ഉണർവുണ്ടാക്കാനും ബജറ്റ് സഹായിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി അരവിന്ദ്

യുഎഇയിൽ പുതിയതായി രണ്ടു പേർക്ക് കൂടി കൊറോണ വൈറസ് രോഗബാധ ഉണ്ടായതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു

വനിത ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിയമ വകുപ്പ് ആഭ്യന്തര വകുപ്പ് എന്നിവ സംയുക്തമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി തിരുവനന്തപുരം ജില്ലയിൽ നാലും തൃശൂർ മലപ്പുറം ജില്ലകളിൽ മൂന്നും കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ രണ്ടും മറ്റ് ജില്ലകളിൽ ഒന്നുള്ള വീതം കോടതികളാണ് അനുവദിച്ചത്

ജലീൽ എഴുപതിന് മുകളിൽ പ്രപ്പായമുള്ളവരെയും പുരുഷൻമാർ ഒപ്പം യാത്ര ചെയ്യാനില്ലാത്ത് ്സ്ത്രീകളെയും ഹജ്ജ് നറുക്കെടുപ്പിന്റെ പ്രക്രിയകളിൽ നിന്ന് ഒഴീവാക്കി നേരിട്ട് അവസരം നൽകിയതായി മന്ത്രി കെ ടി ജലീൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹാജിമാർക്ക് നൽകുന്ന സാങ്കേതിക പഠന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

മണി മലപ്പുറം സംസ്ഥാനത്ത് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ട് ഡാമുകളിലടക്കം സൌരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി എം

മലപ്പുറം ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ വൈദ്യുതി അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബാണാസുര സാഗർ അണക്കെട്ടിൽ സ്ഥാപിച്ചതുപോലെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സോളാർ നിലയങ്ങളാണ് ലക്ഷ്യമാക്കുന്നത് ഇതിനായി ഇടുക്കി ഡാമിലടക്കം സാധൃതാ പഠനങ്ങൾ നടക്കുകയാണെന്നും ശ്രീ

ശബരിമല ശബരിമല തിരുവാഭരണത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ജസ്റ്റിസ് സി

രാമചന്ദ്രൻ നായർ ഇതിനായി ആഭരണ വിദഗ്ധന്റെ സേവനം തേടുമെന്നും ആഭരണങ്ങളുടെ മാറ്റ് പരിശോധിക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പന്തളം കൊട്ടാരത്തിലെ അധികാര തർക്കം പരിശോധിക്കില്ല നാലാഴ്ചക്കകം തിരുവാഭരണങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് നൽകും

നിയമസഭയുടെ ബജറ്റ് സമ്മേളനം കഴിഞ്ഞാലുടൻ മുൻമന്ത്രിയെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് നീക്കം ഇബ്രാഹിംകുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഗവർണർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് വിജിലൻസ് നടപടി അതേസമയം അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഇബ്രാഹിംകുഞ്ഞ് പറഞ്ഞു

ഹൈദ്രാബാദ് ആസ്ഥാനമായുള്ള രാമ്യോജി ഫിലിം സിറ്റിയാണ് വീട് നിർമ്മിക്കാൻ കുടുംബശ്രീയെ ച്ചുമത്രീലപ്പെടുത്തിയത്

ബോർഡ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴ തുറുമുഖ ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വേമ്പനാട്ടു കായലിൽ പാതിരാമണലിനു സമീപം വഞ്ചിവീട് തീപിടിച്ചു നശിച്ചതിനെ തുടർന്നാണ് തീരുമാനം

പോലീസിന്റെ ജനമൈത്രി പ്രവർത്തനങ്ങളിലേയ്ക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

എഫ് മാർച്ചും പ്രതിഷേധയോഗവും നടത്തും ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിഷേധമെന്ന് എൽ ഡി എഫ് കൺവീനർ എ

സി സി

കൊച്ചിയിൽ ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ശിൽപശാലയിൽ ഉയർന്ന നിർദേശങ്ങളെ തുടർന്നാണ് തീരുമാനം

ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ന്യൂസിലാൻഡ് സ്വന്തമാക്കി